ഇന്ത്യയുടെ വ്യോമാക്രമണം ബലാകോട്ടിലെ ജയ്ഷെ ക്യാമ്പ് തകർത്തു

നരേന്ദ്രമോദി ഇന്തൃയുടെ കുതിപ്പ് ആർക്കും തടയാനാവില്ലെന്നും പ്രധാനമന്ത്രി

കേസിൽ വാദം കേൾക്കുന്നത് എട്ട് ആഴ്ചത്തേക്ക് മാറ്റി വച്ചു

ഗാന്ധി സമാധാന പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു

ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയായതായി ഊർജ്ജമന്ത്രി ആർ കെ സിംഗ്

പൈബർ പക്തുംങ്കയിലെ ബലാക്കോട്ട് കൃാമ്പാണ് ഇന്ത്യൻ സൈനികർ തകർത്തത് ഒട്ടേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ വോയിസ് പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഇന്നു പുലർച്ചെ ആക്രമണം നടത്തിയത് ഇന്ത്യക്ക് എതിരെ ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇടുന്നതായി തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് പാക് അധിനിവേശ കശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരകൃാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് അനിവാര്യമായ ആക്രമണമെന്നാണ് വിദേശസെക്രട്ടറി വിജയ് ഗോഖലെ ഇതിനെ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ ഒട്ടേറെ ഭീകരരും പരിശീലകരും സംഘടനയുടെ ഉന്നത കമാന്റർമാരും കൊല്ലപ്പെട്ടതായി ശ്രീ ഗോഖലെ അറിയിച്ചു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ ഭാര്യാസഹോദരൻ മൌലാന യൂസഫ് അസ്ഹറാണ് ഈ കൃാമ്പ് നടത്തിയിരുന്നത് ഇയാളും കൊല്ലപ്പെട്ടതായാണ് വിവരം പുൽവാമയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് നേരത്തെ ഏറ്റെടുത്തിരുന്നു ഇന്ത്യക്ക് നേരെ നിരന്തരമായി ഉ ായ തീവ്രവാദി ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദിനെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിലും പാകിസ്ഥാൻ നടപടികൾ എടുത്തിരുന്നില്ല തുടർന്നാണ് ഇന്തൃ തിരിച്ചടി നൽകിയത് ആക്രമണത്തെ കുറിച്ച് ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ യു എസ് എന്നി രാജ്യങ്ങളോട് വിശദീകരിച്ചതായും ഗോഖലെ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ വോയിസ് സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റിന്റെ ശക്തിയാണ് ലോകം ഇപ്പോൾ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു കവിത ചൊല്ലിക്കൊ ാണ് പ്രധാനമന്ത്രി തന്റെ സംഭാഷണം ആരംഭിച്ചത് ഒരു പുതിയ പാതയിലൂടെ രാഷ്ട്രം വളരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും പ്രധാനം രാജ്യമാണ് ആരുടേയും മുന്നിൽ തല കുനിക്കാൻ അനുവദിക്കില്ലെന്നും ഇന്തൃയുടെ കുതിപ്പിന് ആർക്കും തടയാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ ഒന്നരകോടി വീടുകൾ ഗവൺമെന്റ് നിർമ്മിച്ചു

എങ്കിലും ചില സംസ്ഥാനങ്ങൾ ഇനിയും പദ്ധതിയോട് സഹകരിക്കുന്നില്ല

ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എടുത്ത് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ പ്രാപ്തമാക്കിയതെന്ന് ബി ജെ പി പറഞ്ഞു നവ ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ് കടന്നാക്രമണത്തിലൂടെ പ്രകടമായതെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ട്വീറ്റ് ചെയ്തു വ്യോമസേനയുടെ വൈമാനികരെ സല്യൂട്ട് ചെയ്യുന്നതായി കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽഗാന്ധി അറിയിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും വ്യോമാക്രമണത്തിൽ അഭിനന്ദനം അറിയിച്ചു

ബജറ്റ് സമ്മേളനം നടക്കുന്ന ഹരിയാന് നിയമസഭയിൽ മന്ത്രി രാംവിലാസ് ശർമ്മയാണ് പ്രമേയം പുൽവാമ ഭീകരാക്രമണത്തിന് ഉചിത്മായ മറുപടി നൽകിയ ഇന്ത്യൻ വ്യോമസേനയെ അദ്ദേഹം പ്രകീർത്തിച്ചു കോൺഗ്രസ് എം

യും മുൻസ്പീക്കറുമായ കുൽദ്വീപ് ശർമ്മ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവ് സക്കീർ ഹുസൈൻ എന്നിവർ പ്രമേയത്തെ പിന്തുണച്ചു

പ്രാദേശിക പോലീസും സി ആർ പി എഫുമായി ചേർന്നാണ് ഒൻപത് സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയത് മിർവേയ്സ് ഉമർ ഫറൂഖ് സെയ്ദ് അലിഷാ ഗിലാനിയുടെ മകൻ നൈയിം ഗിലാനി യാസിൻ മാലിക് ഷബിർ ഷാ അഷ്റഫ് ഷെഹറായി സഫർ ഭട്ട് എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് വിഘടനവാദികൾക്ക് നിയമവിരുദ്ധമായി സാമ്പത്തിക സഹായം എത്തുന്നു എന്ന സംശയത്തിലാണ് തെരച്ചിൽ നടത്തിയത്

കേസിൽ വീ ും വാദം തുടർന്നുവെങ്കിലും തർജ്ജമ ചെയ്ത ചില രേഖകളിലെ തർക്കം നീ ു പോയതിനാൽ പുനർ വാദത്തിനായി എട്ടാഴ്ചത്തേക്ക് നീട്ടി വച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുത്തു

ഗുരുഗ്രാമിൽ മാധ്യമങ്ങളെ അഭിസംബ്ലോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ര ് സംസ്ഥാനങ്ങളും ്അതിവേഗം സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നക്സലൈറ്റ് പ്രശ്നകാരണവും രാജസ്ഥാൻ ചില പ്രാദേശിക പ്രശ്നങ്ങൾ കാരണവുമാണ് പിന്നോട്ട് പോയതെന്നും അദ്ദേഹം വിശദീകരിച്ചു

ഗുവാഹത്തിയിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചരിത്രവും സംസ്കാരവും ബി ജെ പിയും ആർ എസ് എസും തകർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

വി ഐ പി ഫ്ഹ്ലികോപ്ടർ ഇടപാടു കേസിൽ അറസ്റ്റിലായ ക്രിസ്ത്യൂൻ മിഷേലിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ഒരു ദീവസത്തേക്കു കൂടി ദീർഘിപ്പിച്ചു

ബി ഐ ഫയൽ ചെയ്തി ക്ഷേസിൽ പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറാണ് കസ്റ്റഡി കാലാവധി ദീർഘിപ്പിച്ചു നൽകിയത് ദുബായിൽ നിന്നും ഇന്ത്യ്ക്കു കൈമാറിയ മിഷേലിനെ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തത്

ബി ഐ യും എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്ന കേസിൽ ആരോപണവിധേയരായ മൂന്നു പേരിലൊരാളാണ് ക്രിസ്ത്യൻ മിഷേൽ ഗ്വയ്ഡോ ഹസ്ചക് കാർലോ ജെറോസ എന്നിവരാണ് മറ്റ് ര ുപേർ

ഡി ഒ വികസിപ്പിച്ച മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന അതിവേഗ പ്രഹര ശേഷിയുള്ള മിസൈലാണ് ഇന്ന് പരീക്ഷിച്ചത്

വൃത്യസ്ത സാഹചരൃത്തിലും ഉയരത്തിലുമായി ര ് മിസൈലുകളാണ് പരീക്ഷിച്ചത്

മിസൈലിന്റെ പരീക്ഷണ വിജയത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഡി

യെ അഭിനന്ദിച്ചു

എട്ടു കാറുകൾ ഒരു ആഭരണ കമ്പനിയു്ം അതിലെ മെഷീനുകൾ ആഭരണങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് പതിമൂവായിരം കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് നീരവ് മോദിയുടെ പേരിലുള്ള കുറ്റപത്രത്തിൽ സി ബി ഐ ആരോപിക്കുന്നത്

കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളിമെഡൽ ജേതാക്കളായ മനീഷ് കൌശിക് സതീഷ്കുമാർ എന്നിവരെ കൂടാതെ ദീപക് സിംഗ് പി ലളിത പ്രസാദ് സഞ്ജീത് മഞ്ജീത് സിംഗ് പംഹാൾ എന്നിവരാണ് ഫൈനലിൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങൾ എന്നാൽ രോഹിത് തോകാസ് ദുര്യോധൻ സിംഗ് നേഗി എന്നിവർക്ക് വെങ്കല മെഡൽ കൊ ് തൃപ്തിപ്പെടേ ി വന്നു